എം എം കോൺഗ്രസ് ആർ

പി ഏറ്റവും വലിയ ഒറ്റകക്ഷി

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽ

എഫുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് കെ

സി പ്രസിഡണ്ട് മുല്ല പ്പള്ളി രാമചന്ദ്രൻ പരമ്പരാഗത കൃഷി രീതികളെ തിരിച്ചുപിടിക്കാൻ വീട്ടമ്മമാർക്ക് കൃഷി പാ ഠ ശാല പദ്ധതി നട പ്പാക്കു മെന്ന് മന്തി വി എസ് സുനിൽകുമാർ

വെങ്കയ്യനായിഡു വിതരണം ചെയ്യും

ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് ആർ

ജെ

ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി

ജെ പി യുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടി യാണ് ജാർഖണ്ഡ് വിധിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത് കോൺഗ്രസ് പ്രതീക്ഷിച്ച വിജയമാണെന്നും പൌരത്വ ഭേദ ഗതി നിയമം ജാർഖണ്ഡ് ജനത തള്ളിയതിന്റെ ഫലമാണിതെന്നും വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന മുൻനിലപാ ടിൽ ഉറച്ചുനിൽക്കുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ഗവർണർ എന്ന നിലയിൽ രാഷ്ട്രീയമായ നിലപാട് ഒരു കാര്യത്തിലും സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ടെന്നും കോൺഗ്രസ് വിമർശനത്തെ മാനിക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു വിയോജിപ്പുകൾ ആരോ പണങ്ങളായി ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും രാജ്ഭവനിലെത്തി യാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറ ഞ്ഞു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽ

എഫുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് കെ

ഇത്തരം വിഷയങ്ങളിൽ കെ

സി സി പ്രസിഡണ്ടിന്റേതാണ് പാർട്ടി നിലപാടെന്നും അതിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മറ്റി യോഗം ചേർന്ന് തീരുമാനിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു

ഡി എഫുമായി ചേർന്ന് സമരം ചെയ്യണമെന്ന പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശ ശുദ്ധി ചോദ്യം ചെയ്യു ന്നില്ലെന്നും മുല്ലപ്പള്ളി വൃക്തമാക്കി പൌരത്വ നിയമ ഭേദഗതി ഭര ണഘടനാ വിരുദ്ധവും മത സ്വാതന്ത്ര്യം സമത്വം എന്നിവയ്ക്ക് എതിരാണെന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു പിണറായി വിജയൻ കൈക്കൊള്ളുന്നത് മൃദു ഹിന്ദുത്വ നിലപാടാണെന്ന് അദ്ദേഹം ആരോപിച്ചു നേരത്തെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മറ്റിയുടെ കെ കരുണാകരൻ അനുസ്മരണ യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

പൌരത്വ നിയമത്തി നെതിരെ പ്രതിഷേധിച്ചവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത നടപടിയെ കെ

സി സി പ്രസിഡണ്ട് ശക്തമായി വിമർശി ച്ചു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിൽ കോൺഗ്രസും സി

എമ്മും സംയുക്ത സമരത്തിനിറങ്ങുന്നതിനോട് യോജി ക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം കേരളത്തിൽ ഡി

പി യിലൂടെ നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ശ്രമിക്കുന്നതെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് പ്രഖ്യാ പിച്ചത് പോലെ യു

എ യും വേണ്ടെന്ന് വെക്കാൻ ഗവൺമെന്റ് ആർജ്ജവം കാണിക്കണമെന്ന് സി

ഐ

പൌരത്വ ഭേദഗതിയിലില്ലാത്ത ഭരണഘടനാ ബാധ്യത യു

എ യിൽ എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു

എ

പന്തീരങ്കാവ് കേസിൽ പൊലീസിന്റെ വാദം വിശ്വസനീയമല്ലെന്നും കാനം പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണ മെന്നാവശ്യപ്പെട്ട് മുസ്ലീം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫിസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് വൈകിട്ട് രാജ്ഘട്ടിൽ പ്രതിഷേധ ധർണ നടത്തും മഹാത്മാഗാന്ധി സ്മാര കത്തിനടുത്താണ് ധർണ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോ ഹൻസിംഗ് രാഹുൽഗാന്ധി എന്നിവരും മുതിർന്ന നേതാക്കളും സംഘടനാ പ്രവർത്തകരും ധർണയിൽ പങ്കെടുക്കും ധർണയിൽ പങ്ക് ചേരാൻ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും രാഹുൽഗാന്ധി ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്തു ചെന്നൈയിൽ ഡി

കെ യുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംയുക്ത മാർച്ച് ആരംഭിച്ചു എഗ്മൂരിൽ നിന്ന് രാജരത്തിനം സ്റ്റേഡിയത്തിലേക്കാണ് മാർച്ച്

കെ പ്രസിഡണ്ട് എം കെ സ്റ്റാലിൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം എം ഡി എം

പരമ്പരാഗത കൃഷി രീതികളെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വീട്ടമ്മമാർക്കായി കൃഷിപാഠശാല പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽ കുമാർ കണ്ണൂർ ജില്ലാതല കർഷക അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇതു വഴി ആദ്യഘട്ടത്തിൽ പരമ്പരാഗത കാർഷിക രീതിയെക്കുറിച്ച് വീട്ടമ്മമാർക്ക് പരിശീലനം നൽകും പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിത്തുകളും തൈകളും നൽകി വീട്ടുമുറ്റത്ത് പോഷക തോട്ടം ഒരുക്കുന്നതാണ് പദ്ധതി മുൻ പ്രധാനമന്ത്രിയും കർഷക നേതാവുമായിരുന്ന ചൌധരി ചരൺസിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആദരാഞ്ജലിയർപ്പിച്ചു സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളി ലേക്ക് മാറ്റിനിർത്തിയ ജനതയുടെ ഉന്നമനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു

വെങ്കയ്യ നായിഡു ഇന്ന് ന്യൂഡൽഹിയിൽ വിത രണം ചെയ്യും

ബോളിവുഡ് താരങ്ങളായ ആയുഷ്മാൻ ഖുറാനയും വിക്കി കൌശലും മികച്ച നടന്മാർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരവും മലയാളിയായ കീർത്തി സുരേഷ് തെലുങ്കു ചിത്രം മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടി പുരസ്കാരവും ഏറ്റുവാങ്ങും ഡൽഹിയിലെ കിരാരി മേഖലയിൽ വസ്ത്രനിർമ്മാണശാ ലയ്ക്ക് തീപിടിച്ച് ഒമ്പത് പേർ മരിച്ചു പത്തോളം പേർക്ക് പരി ക്കേറ്റു

മൂന്നു നില വാണിജ്യ പാർപ്പിട സമുച്ചയത്തിന്റെ താഴത്തെ നിലയിലെ വസ്ത്ര ഗോഡൌണിലാണ് തീപിടിത്തമുണ്ടായത് പുലർച്ചെ നാലു മണിയോടെ ഫയർഫോഴ്സ് തീ നിയന്ത്രണവിധേയമാക്കി കെട്ടി ടത്തിൽ അഗ്നിസുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് ശബരിമല മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി തങ്കഅങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് തങ്കഅങ്കി ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്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

എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കുട്ടനാട്ടിലെ പൂപ്പള്ളി വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് യാത്രാമദ്ധ്യേ വൈകിട്ട് ആലപ്പുഴ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും നാളെ ഉച്ചയ്ക്കുശേഷം ചേന്നങ്കരി സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാരം മാനവികതക്കും പരിസ്ഥിതിക്കും വേണ്ടി പടവാൾ ഉയർത്തിയ കവിയാണ് ഇടശ്ശേരിയെന്ന് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ പറഞ്ഞു കുറ്റിപ്പുറത്ത് ഇടശ്ശേരി സ്മൃതി ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മന്ത്രി എ

മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ അമിതവേഗത്തിലാണ് കാർ ഓടിച്ചിരുന്നതെന്ന് ഫോറൻസിക് സയൻസ് ലാബ് വിലയിരുത്തി

വെള്ളയമ്പലത്തെ കെ

സി യ്ക്ക് മുന്നിലെ ദൃശ്യം പരി ശോധിച്ചതിലാണ് വാഹനം അമിതവേഗത്തിലായിരുന്നുവെന്ന് കണ്ടെത്തിയത്

യാത്രാക്ലേശം ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി തൊട്ടിൽപാലം ഡിപ്പോയിൽ നിന്നും അരമണിക്കൂർ ഇടവിട്ട് പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മരടിലെ പൊളിച്ചു നീക്കുന്ന ഫ്ളാറ്റുകൾക്ക് സമീപം താമസിക്കുന്നവരും നഗരസഭാ അധികൃതരും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും

കെട്ടിടം പൊളിക്കുമ്പോൾ സമീപവാസിക ളുടെ വീടുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ കാര്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കൂടി ക്കാഴ്ച കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ നടക്കുന്ന ആരോഗ്യ സർവകലാശാല ദക്ഷിണമേഖല കലോത്സവം ഇന്ന് സമാപിക്കും

സമാപനസമ്മേളനം വൈകിട്ട് ജി എസ് ജയലാൽ എം

എ ഉദ്ഘാടനം ചെയ്യും